പ്രധാനമന്ത്രി നരേന്ദ്രമോദ്യിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ ആവുശ്യൂങ്ങൾ ഉന്നയിച്ചു

ഇന്ത്യയിൽ നിന്നുള്ള സിഖ് തീർത്ഥാടകർക്ക് വിസ നിഷേധിച്ച പാകിസ്ഥാൻ നടപടിയിൽ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു

ഇന്ത്യയ്ക്കെതിരായ ഭീകര പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ മണ്ണിൽ സ്ഥാനമുണ്ടാവില്ലെന്ന് ബംഗ്ലാദേശ്

മുതിർന്ന പൌരൻമാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായ ബോധവൽക്കരണ ദിനം ഇന്ന്

ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ പൂരുഷ സീരീസ് ഫൈനലിൽ ഇന്ന് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും

കൂടുതൽ വിവരങ്ങളുമായി ഷീജ

മഴവെള്ള സംഭരണം വർച്ചയും ദുരിതാശ്വാസ നടപടികളും കൃഷി നക്സൽ ബാധിത ജില്ലകളിലെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും

പ്രധാനമന്തിക്ക് പുറമേ സംസ്ഥാന മുഖ്യമന്ത്രിമാർ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനന്റ് ഗവർണർമാർ പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും രാജ്യരക്ഷാമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ധന കൃഷി വകുപ്പ് മന്ത്രിമാർ എന്നിവരും യോഗത്തിൽ സുംബന്ധിക്കും

നരേന്ദ്രമോഡി രണ്ടാം വട്ടവും പ്രധാനമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത് രാവിലെ പത്ത് മണിയോടെ കല്ല്യാൺ മാർഗ്ഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടത് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച് സമഗ്രമായ നിവേദനം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറി

കൃഷി ഗ്രാമവികസനം നഗരവികസനം തുടങ്ങിയ മേഖലകളിലാണ് കേരളം സഹായം പ്രതീക്ഷിക്കുന്നത്

സംസ്ഥാനം വീണ്ടും മഴക്കെടുതിയെ നേരിടുകയാണെന്ന കാര്യവും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന്ൂാണ് റിപ്പോർട്ട് കർണാടക ആന്ധ്രാപ്രദേശ് മുഖൃമിന്ത്യ്മാ്രും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി

ഇന്ത്യൻ തീർത്ഥാടകരുടെ മതവികാരത്തേയും ഭക്തിയേയും അവഗണിച്ച പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ നടപടിയിൽ ഇന്ത്യ ഉത്കണ്ഠ അറിയിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഒരുസംഘം തീർത്ഥാടകർക്ക് മാത്രമാണ് പാകിസ്ഥാൻ ഏകപക്ഷീയമായി റെയിൽ മാർഗം സഞ്ചരിക്കാനുള്ള നിയന്ത്രിത വിസ അനുവദിച്ചത്

ബി എസ് എഫിന്റെ പ്രതിനിധ്യികളടങ്ങുന്ന സംഘത്തിന്റെ ബംഗ്ലാദേശ് സന്ദർശനത്തിന്റെ അവസാന്ത്രിവ്സമായ ഇന്ന് ഇരു രാജ്യങ്ങളും ചർച്ചകളുടെ സംയുക്തിൽബ് ധാക്കയിൽ ഒപ്പുവച്ചു പ്രതിനിധികൾ അതിർത്തി സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തു ചർച്ചയിൽ എടുത്ത നടപടികൾ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസം ഊട്ടിയുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിനിധികൾ വ്യക്തമാക്കി

ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ എയിംസിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ നിർബന്ധിതരാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി എയിംസിലെ ഡോക്ടർമാർ ജോലിക്ക് കയറിയെങ്കിലും പ്രതിഷേധത്തിന്റെ ഭാഗമായി കറുത്ത ബാഡ്ജ് ഹെൽമെറ്റ് എന്നിവ ധരിച്ചാണ് പണിയെടുക്കുന്നത് പശ്ചിമബംഗാളിലെ ഡോക്ടർമാരോട് ഐകൃദാർഢൃം പ്രഖ്യാപിച്ച് ഡൽഹിയിലെ ആശുപത്രികളിൽ ഫെഡറേഷൻ ഓഫ് റസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്ന സ്ട്രാഘടനയിലെ ഡോക്ടർമാരും പ്രതിഷേധം നടത്തി

വീണ്ടും പ്രധാനമന്ത്രിയായശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ മൻ കി ബാത്ത് പരിപാടിയാണിത് ജനങ്ങൾക്ക് അവരുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ് മൈ ഗൌവ് ഓപ്പൺ ഫോറം എന്നിവയിലൂടെ പ്രധാനമന്ത്രി നേരിട്ടറിയിക്കാം

ഇന്ത്യയും ദക്ഷാണാഫ്രിക്കയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്

ഈ ടൂർണമെന്റിലെ വിജയിക്കുന്ന രണ്ട് ടീമുകൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ പങ്കെടുക്കും വനിതാ സീരീസ് ഫൈനൽ ജപ്പാനിലെ ഹിരോഷിമയിൽ ഇന്ന് രാവിലെ ആരംഭിച്ചു

നോയിഡ ആത്രോടറിറ്റി ഗ്രേറ്റർ നോയിഡ അതോറിറ്റി ഗ്രേറ്റർ നോയിഡയില്ലെ ക്യമുന എക്സ്പ്രസ് വേ അതോറിറ്റി എന്നിവയുടെ പ്രവർത്തനം വിലയിരുത്തുകയായിരുന്നു യോഗി ആദിത്യനാഥ് ഗത്മഗ്ഗരും വികസനം വ്യവസായ വിഷയം എന്നിവയും ചർച്ച ചെയ്തു

ടെലികോമുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യം ഒരുക്കുക ലക്ഷ്യമിട്ടാണിത് ഉത്തർപ്രദേശ് ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകർക്ക് വേഗത്തിൽ അനുമതി നൽകാൻ ഏകജാലക സംവിധാനത്തിലൂടെ കഴിയും

ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് ഗുജറാത്ത് ഗവൺമെന്റ് അറിയിച്ചു ചുഴലിക്കാറ്റിന്റെ ഗതി നിരീക്ഷിച്ച് വരികയാണെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറി പങ്കിട്ട് ഒമാർ പറഞ്ഞു

ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് സന്ദർശനം ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ദിന ആക്രമണങ്ങളിൽ ഐക്യദാർഡ്യം പ്രകടിപ്പിക്കുവാനും സന്ദർശനം ലക്ഷ്യമിടുന്നു

നാഷണൽ ഫെർട്ട്ലൈസേഴ്സ് ലിമിറ്റഡ് പരിസരത്ത് ധാരാളം വവ്വാലുകൾ ചത്തതിനെ തുടർന്നാണിത് ഗ്വാളിയർ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേൾം പുറപ്പെടുവിച്ചിട്ടുണ്ട്

റൺ റേറ്റ് കുറവായതിനാലാണ് പോയിന്റുണ്ടായിട്ടും ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്

മുന്ന് പോയിന്റുവീതം നേടിയ വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവർ യഥാക്രമം ആറ്ഏഴ് എട്ട് സ്ഥാനങ്ങളിലാണ്

തമിഴ്നാട്ടിലെ മധുരയിൽ ട്രെയിനിൽ വച്ച് ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്